പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ബെൻസാഗർ കനാൽ രാഷ്ട്രത്തിന് സമർപ്പിക്കും

ചർച്ചയ്ക്ക് ഇന്ന് ധാക്കയിൽ തുടക്കമാകും

ആന്ധ്രാപ്രദേശിലെ ഗോദാവരി നദിയിൽ വള്ളം മറിഞ്ഞ് ന് ആറ് പേരെ കാണാതായി

ഫ്രാൻസ് ക്രൊയേഷ്യ പോരാട്ടം ഇന്ന് വൈകിട്ട് ഇംഗ്ലണ്ടിനെ തോൽപിച്ച് ബെൽജിയം മൂന്നാം സ്ഥാനം നേടി

ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി അസദ്ഉസ്മാൻ ഖാൻ കമാലും ചർച്ചയിൽ പങ്കെടുക്കും

രാജ്നാഥ് സിംഗ് ഇന്നലെ പ്രധാനമന്ത്രി ഷേക് ഹസീനയുമായിട്ടു ചർച്ച നടത്തി ഭീകരവാദ പ്രവർത്തനങ്ങളെ തുടച്ചു നീക്കുന്നുതിന്റിയുള്ള പ്രവർത്തനങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്തു പ്രി ഇ്ന്ത്യയുടെ ഏറ്റവും വലിയ വിസാകേന്ദ്രം ധാക്കയിൽ കഴിഞ്ഞ്ദിവസം ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു

കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ

മിർസാപൂർ അലഹബാദ് ജില്ലകളിലെ ജലസേചനത്തിനു വേണ്ടിയുള്ള പദ്ധതിയാണിത് മിർസാപൂർ മെഡിക്കൽ കോളേജിന് പ്രധാനമന്ത്രി തറക്കല്പിടും മിർസാപൂറിനെയും വാരണാസിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഗംഗാനദിയ്ക്ക് മുകളിൽ നിർമ്മിച്ച പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

പഞ്ച്കേശി പരിക്രമ റോഡ് സ്മാർട്ട്സിറ്റി പദ്ധതി പ്രകാരമുള്ള നിരവധി പദ്ധതികൾ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ തുടങ്ങിയവയ്ക്കും പ്രധാനമന്ത്രി ഇന്നലെ തറക്കല്ലിട്ടു അസംഗഡിലും വാരാണാസിയിലും പൊതുപരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു ഉത്തർപ്രദേശിന്റെ വികസനത്തിൽ പുതുചരിത്രത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മൂലനധന ഉപയോഗത്തിൽ പ്രത്യേകിച്ച് നിർമ്മാണരംഗത്തെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ നിർണ്ണായക പങ്കാണ് കോസ്റ്റ് അക്കൌണ്ടന്റ്സീന് വഹിക്കാനുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി

ഷിരോമണി കബിർ പ്രകാട്ട് ദിവസ് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം

രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീമതി സുഷമ സ്വരാജ് ഇന്നലെ ബെഹ്റിനിൽ എത്തി ബെഹ്റിൻ ഇന്ത്യൻ എംബസിയിലെ പുതിയ കെട്ടിട സമുച്ചയം മന്ത്രി ഉദ്ഘാടനം ചെയ്തു

ഇന്നലെ വൈകുന്നേരമാണ് അപകടം നടന്നത് പത്ത് പേരെ രക്ഷപ്പെടുത്തി

രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി എൻ

ബംഗളൂരുവിൽ ജിഎസ്ടി മന്ത്രിതല സംഘത്തിന്റെ ഒൻപതാമത് സമ്മേളനശേഷം മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒക്ടോബർ ഒന്ന് മുതൽ ഘട്ടം ഘട്ടമായി ്ടിഡിഎസ് ആരംഭിക്കാൻ ജിഎസ്ടി കൌൺസിൽ ശുപാർശ്ശ് ച്ചെയ്തതായി ശ്രീ സുശീൽകുമാർ മോദി പറഞ്ഞു

അതിർത്തി കടന്നുള്ള നുഴഞ്ഞു കയറ്റ ശ്രമങ്ങളെ ചെറുക്കാൻ സൈനൃം നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത് വെല്ലുവിളികളെ അതിജീവിക്കാൻ സൈനികർ സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു

ഇംഗ്ലണ്ടിനെ തോൽപിച്ച് ബെൽജിയം മൂന്നാം സ്ഥാനം നേടി

തുടർന്ന് ഇരുടീമുകളും അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിക്കും

ബാങ്കോക്കിൽ നടന്ന സെമി ഫൈനലിൽ ഇന്തോനേഷ്യയുടെ ഗ്രിഗോരിയ മരിസ്കാതുഞ്ചംഗിനെ പരാജയപ്പെടുത്തിയാണ് പി

സിന്ധു ഫൈനലിൽ ഇടംപിടിച്ചത് ഇന്ന് നടക്കുന്ന ഫൈനലിൽ ജപ്പാന്റെ നവോമി ഒക്കുഹാരെയാണ് പി

കെർബറുടെ മൂന്നാം ഗ്രാൻസ്താം കിരീടമാണിത്

ബലഭദ്രന്റെയും ദേവി സുഭദ്രയുടെയും രഥങ്ങൾ ശ്രീഗുണ്ടിച്ച ക്ഷേത്രത്തിന് അടുത്തെത്തി എട്ട് ലക്ഷത്തോളം പേർ രഥോത്സവം വീക്ഷിക്കാൻ എത്തിയതായി ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു